നൽകുന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ നൂറ് കോടി രൂപ വായ്പ നൽകും വയനാട്ടിൽ മാവോയിസ്റ്റ് കൃഷ്ടിവൃത്പ്പ്

ഏറ്റുമുട്ടലിൽ ഒരാൾ ക്യൊല്ല്പ്പെട്ടതായി സൂചന

തുടക്കം ഐ

ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

നടപ്പു സാമ്പത്തിക വർഷം നൂറ് കോടി രൂപ ഇത്തരത്തിൽ വായ്പ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന കാർഷിക യന്ത്ര വൽക്കരണ ഉപ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കാർഷിക യന്ത്ര പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് ഗുണമേൻമ ഉറപ്പുവരുത്തിയ ഉപകരണങ്ങൾ മാത്രമേ പദ്ധതിയിൽ വാങ്ങാനാകൂ

യിൽങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രം സ്ഥാപിക്കാൻ ്രാശ്രത്മാനം സാമ്പത്തിക സഹായം സർക്കാർ നൽകുംകർഷക കൂട്ടായ്മയ്ക്ക് കാർഷിക യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ ദ്ദ്മൂ ശ്തമാനം സബ്സിഡി നൽകുമെന്നും മുഖ്യമന്ത്രീട് പ്റഞ്ഞു

രാവിലെ റോന്തുചുറ്റലിന് പോയ തണ്ടർ ബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് സൂചന പ്രദേശത്ത് തണ്ടർബോൾട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്

ശരീരത്തിന്റെ ഗുഹൃഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മൂന്നു കിലോ സ്വർണമാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയത്

തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കളക്ടർമാരുമായും തുടർന്ന് ചീഫ് സെക്രട്ടറിയുമായും നാളെ കൂടിയാലോചന നടത്തും ഇന്നലെ സംസ്ഥാന പോലീസ്റ് ്മേധാവി ലോക്നാഥ് ബെഹ്റയുമായി തെരഞ്ഞെടുപ്പ് കമ്മൂീഷണ്ർ ചർച്ച നടത്തിയിരുന്നു

ഈയാഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപ്പിച്ചേക്കും

ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റ നിരോധനം ഇന്നലെ പ്രാബലൃത്തിൽ വന്നു

സി ജനറൽ സെക്രട്ടറി ഉമ്മൻ ചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യു

എഫ് ജില്ലാ കമ്മിറ്റി യോഗം പ്രാരംഭ ചർച്ച നടത്തി ഈ മാസം എട്ടിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യുഡിഎഫ് കൺവീനർ എം എം ഹസൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ സീറ്റു വിഭജനം സംബന്ധിച്ച് അന്തിമധാരണ രൂപീകരിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു

ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ടോം മാത്യു

് ഉച്ചതിരിഞ്ഞ് മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യുട് സ്പ്പെകോ നാഫെഡ് വഴി സംഭരിച്ച സവാളയുടെ ജില്ലയ്ടില്ല് ൂവിതരണം ഇന്നാരംഭിക്കും

സി ജോർജ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പി

ജോർജ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവച്ചിരിക്കുകയാണ്

ആനക്കണ്ടൽ ചുള്ളിക്കണ്ടൽ നക്ഷത്ര കണ്ടൽ തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവിടെയുണ്ട്

സജിത് കുമാർ ഇൻട്രോ കോവിഡുമായി ബന്ധപ്പെട്ട് ഗൃഹചികിത്സയിലുള്ളവർ വളരെ കരുതലോടെ മുന്നോട്ടു പോകണമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കോവിഡ് നോഡൽ ഓഫീസർ ഡോ സജിത് കുമാർ

ഒന്നാംഘട്ടത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കു പുറമെ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നാവിക സേനകളും അഭ്യാസത്തിൽ പങ്കെടുക്കും വിശാഖ പട്ടണത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിലാണ് അഭ്യാസം നടക്കുക

എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

തോറ്റെങ്കിലും മികച്ച റൺ റേറ്റ് തുണച്ചതോടെ ബാംഗ്ലൂരും പ്നേ ഓഫില്ലെത്തി

ജീപ്പ് ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ വനത്തിനുള്ളിലെ ദുർഘട പാതയിലൂടെ കാൽനട യാത്ര ചെയ്തു വേണം ഗ്രാമത്തിലെത്താൻ ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ നൽകുന്ന വിവരങ്ങൾ

എല്ലാ ഇടപാടുകളും സുതാര്യമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ശ്രീ

ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ അന്വേഷണത്തിനായി കാര്യങ്ങൾ വിട്ടുക്കൂാടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഡിജിറ്റൽ ശ്രീ കുടുംബശ്രീയുടെ ദൈനംദിന് പ്രവ്ർത്തനങ്ങളും കണക്കുകളും കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും ശേഖരിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിന്റുമുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതി ഡിജിറ്റൽ ശ്രീ യ്ക്ക് ഗുരുവായൂർ നഗരസഭയിൽ തുടക്കമായി ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആപ്പ് പ്രവർത്തനം

ഡി ആക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് മന്ത്രി ടി